പ്രക്ഷോഭം നടത്തുമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല

ശബരിമലയിലെ നിരോധനാജ്ഞ ഗൂഢാലോചനയെന്ന് ബിജെപ്പി നേതാവ് വി മുരളീധരൻ

ഇപ്പോൾ നടക്കുന്ന സമരം ഭക്തിയുടെ ഭാഗമല്ല

ഭക്തരെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഉപയോഗപ്പെടുത്തുകയാണെന്നും വിഷയ ത്തിൽ കോൺഗ്രസ് ആർ എസ് എസിനോടൊപ്പമാണെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

ജനാധിപത്യ അവകാശങ്ങൾ നിഷേധി ക്കുന്ന ഘട്ടം വന്നപ്പോഴാണ് പൊലീസ് ഇടപെട്ടത് ദർശനത്തിനുവരുന്ന ഭക്തർക്ക് സൌകര്യങ്ങളൊരുക്കുന്നതിനുവേണ്ടിയാണ് ചിലരെ അറസ്റ്റുചെ യ്തുനീക്കേണ്ടിവന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയസമരത്തിന് ഭക്തരെ ബലിയാടാക്കരുതെന്നും അക്രമത്തിന്റെ കേന്ദ്രമാക്കി ശബരിമ ലയെ മാറ്റരുതെന്നും വിശ്വാസികൾക്ക് സംരക്ഷണം നൽകുകയാണ് ഗവൺമെന്റ് നയമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കുന്നതുവരെ യു

എഫ് പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല നിലയ്ക്കലിൽ അറിയിച്ചു

ശബരിമലയിൽ പൊലീ സിന്റെ ധാർഷ്ട്യമാണ് നിലനിൽക്കുന്നതെന്ന് ചെന്നിത്തല പറഞ്ഞു ശ ബരിമലയിലെ സാഹചര്യങ്ങൾ വിലയിരുത്താനും തീർത്ഥാടകരുടെ പ്രയാസങ്ങൾ നേരിൽ കാണാനും എത്തിയ യു ഡി എഫ് സംഘത്തെ തട ഞ്ഞതിനെതുടർന്നാണ് പ്രതിപക്ഷനേതാവ് ഇക്കാര്യം അറിയിച്ചത് പ്രതിപക്ഷനേതാവിന്റെയും യു ഡി

ഡിഎഫ് സംഘം യാത്രതിരിച്ചത് നിലയ്ക്കലിൽ സംഘത്തെ പൊലീസ് തടഞ്ഞതിനെതുടർന്ന് യു ഡി എഫ് സംഘം റോഡിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു

സാധാരണ ഭക്തരെകൂടി തീർത്ഥാടനത്തിൽനിന്ന് മാറ്റിനിർത്താനാണ് പൊലീസ് ശ്രമിക്കുന്നതെന്നും ചെന്നിത്തലയും യുഡിഎഫ് നേതാക്കളും ആരോപിച്ചു ശബരിമലയിലെ നിരോധനാജ്ഞ ഗൂഢാലോചനയാണെന്ന് ബിജെപി നേതാവ് വി

ദേവസ്വംബോർഡിനെ നോക്കുകുത്തിയാക്കി ശബരിമലയിൽ പൊലീസ്രാജ് നടപ്പാക്കുകയാ ണെന്നും അദ്ദേഹം പറഞ്ഞു അടിസ്ഥാനപരമായ ആരാധനാ സമ്പ്രദാ യത്തെ ഗവൺമെന്റ് അടിച്ചമർത്തുകയാണെന്നും മുരളീധരൻ പമ്പയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ശബരിമല തീർത്ഥാടകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനാണ് ബി

പി എം പിമാരായ വി മുരളീധരനും നളിൻകുമാർ കട്ടീലും ശബ രിമലയിലേക്ക് പോകുന്നത് ശബരിമലവിഷയം സംസ്ഥാനഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത് തെറ്റായ രീതിയിലാണെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പറ ഞ്ഞു അടിസ്ഥാന സൌകര്യമൊരുക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും തീർത്ഥാ ടകരോട് പൊലീസ് മനുഷ്യതമില്ലാതെയാണ് പെരുമാറുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി റഷ്യയിലെ ലേബർ ക്യാമ്പുകളിലെ തൊഴിലാളി കളോടെന്നപോലെയാണ് മുഖ്യമന്ത്രി അയ്യപ്പഭക്തരോട് പെരുമാറുന്ന തെന്നും അമിത്ഷാ ട്വിറ്ററിൽ കുറിച്ചു ശബരിമലയിലെ തീർത്ഥാടക സൌകര്യങ്ങൾ പരിശോധിക്കാൻ മനു ഷ്യാവകാശ കമ്മീഷൻ ശബരിമലയിലെത്തി

കൊട്ടാരക്കരയിലെ എൻ

പൊലീസ് അന്വേഷണം തുടങ്ങി ശബരിമലയിലെ നിയന്ത്രണങ്ങൾ കെ

യുടെ വരു മാനത്തെ ബാധിച്ചതായി എം

ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ സൈനികൻ വീരമൃത്യു വരിച്ചു മൂന്ന് സൈനികർക്ക് പരിക്കേറ്റു പുലർച്ചെ നദിഗാം ഗ്രാമത്തിൽ പരിശോധന നടത്തുകയായിരുന്ന സംയുക്തസേനയ്ക്കുനേരെ ഭീകരർ വെടിവെയ്ക്കുകയായിരുന്നു സൈനൃത്തിന്റെ തിരിച്ചടിയിൽ നാലു ഭീകരർ കൊല്ലപ്പെട്ടു

നക്സൽ ആക്രമണ ഭീഷണി ഉള്ളതിനാൽ കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇന്ന് നബിദിനം

പ്രഭാത നമസ്കാരത്തിന് മുൻപുതന്നെ മസ്ജിദുകളിൽ മൌലിദ് സദസ്സുകൾ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ ഘോഷയാത്ര കൾ മധുര വിതരണം കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ ഇതോട നുബന്ധിച്ച് അരങ്ങേറി അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം സംസ്ഥാനതല സമാപനം ഇന്ന് കാഞ്ഞങ്ങാട്ട് നടക്കും ഉച്ചയ്ക്ക് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സമാ പന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

സമ്മേളനത്തിന് മുന്നോടിയായി കാഞ്ഞങ്ങാട് കേന്ദ്രീകരിച്ച് സഹകരണ സന്ദേശയാത്രയുണ്ടാകും ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളക്ക് ഇന്ന് കൊടിയേറും

ശ്യാമപ്രസാദ് മുഖർജി ഇൻഡോർ സ്റ്റേഡിയ ത്തിൽ വൈകീട്ട് നാലരയ്ക്കാണ് ഉദ്ഘാടന പരിപാടി

ഈ ഗവൺമെന്റ് അധികാരത്തിൽവന്നശേഷം ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതായി മന്ത്രി കെ

ശൈലജ പറഞ്ഞു മലപ്പുറത്ത് പബ്ലിക് ഹെൽത്ത് ലാബ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ

കേരളത്തിലെ ഗവൺമെന്റ് സ്വകാര്യ ആശുപത്രി നഴ്സുമാർക്ക് ആഗോള പഠന പരിപാടിയനുസരിച്ച് ബ്രിട്ടണിലെ ആശുപത്രികളിൽ ജോലിയും പരിശീലനവും ലഭ്യമാക്കുന്ന പദ്ധതിക്ക് നാളെ കരാർ ഒപ്പി ടും ഒഡേപെക്കും ഹെൽത്ത് എജ്യുക്കേഷൻ ഇംഗ്ലണ്ട് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുമാണ് കരാറിൽ ഒപ്പുവെയ്ക്കുന്നത് ചടങ്ങിൽ മന്ത്രി ടി

രാമകൃഷ്ണൻ സംബന്ധിക്കും പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കുന്ന ഗവൺമെന്റ് ആശുപത്രി നഴ്സുമാർക്ക് മൂന്നുവർഷം ആരോഗൃവകുപ്പ് അവധി നൽകും കരിപ്പൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് വലിയ വിമാന സർവീസ് അടുത്തമാസം അഞ്ചിന് ആരംഭിക്കുമെന്ന് അറിയിപ്പ് ലഭിച്ചതായി എം

കോഴിക്കോട്ട് നിന്ന് ജിദ്ദയിലേക്കാ യിരിക്കും സർവീസ്

ഒന്നാം വർഷ പ്രീക്ഷയ്ക്ക് ഡിസംബർ മൂന്നുവരെ പിഴയില്ലാതെ ഫീസടയ്ക്കാം മലപ്പുറം ജില്ലയിൽ നാലിടത്ത് കെ

എടപ്പാൾ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലും കുറ്റി പ്പുറം പൊന്നാനി ദേശീയപാതയിലും കാലിക്കറ്റ് സർവകലാശാലാ പരി സരത്തും കാക്കഞ്ചേരിയിലും ഉണ്ടായ കല്ലേറിൽ എട്ട് ബസ്സുകളുടെ ചില്ലു കൾ തകരുകയും രണ്ട് ഡ്രൈവർമാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തിന് പിന്നിൽ ശബരിമല പ്രതിഷേധക്കാരാണോ എന്ന് പൊലീസ് സംശയിക്കുന്നു വിശാലകൊച്ചി മേഖലയിലെ ജലവിതരണം ഇന്ന് വൈകുന്നേര ത്തോടെ സാധാരണ നിലയിലാകുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു ആലു വയിൽ നിന്നും ചൊവ്വരയിൽ നിന്നും പരീക്ഷണാടിസ്ഥാനത്തിൽ പമ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ജില്ലയിലെ നിർധന അംഗങ്ങൾക്കായി ആരംഭിച്ച പ്രതിമാസ പെൻഷൻ പദ്ധതിയുടെ നാലാംവാർഷികം ഇന്നാഘോഷിക്കും നബിദിനാഘോഷ പരിപാടികളും പാലക്കാട് എൻ എം